സമൂഹ വ്യാപനത്തിലേക്ക് കടന്നതായി ഐ

വാർത്തകൾ വിശദമായി അനുബന്ധ മേഖലകളിൽ സാങ്കേതിക വിദ്യ കാർഷിക ഉപയോഗപ്പെടുത്താനും പുതിയ മാർഗങ്ങൾ ഉറപ്പു വരുത്താനും സ്റ്റാർട്ടപ്പുകളേയും കാർഷിക സംരംഭങ്ങളേയും പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

കാർഷിക മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നതോടൊപ്പം കർഷകരുടെ വരുമാനം വർധിപ്പിക്കുന്നതിന് സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൃഷി സ്ഥലങ്ങളിൽ നിന്ന് കാർഷികോത്പന്നങ്ങൾ എളുപ്പത്തിൽ വിപണികളിൽ എത്തിക്കുന്നുവെന്ന് ഉറപ്പു വരുത്തണം ഇതിനായി കിസാൻ രഥ് എന്ന ആപ്പ് തുടങ്ങിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു കർഷകർക്ക് ഗുണകരമാകുന്ന രീതിയിൽ കാർഷിക വിദ്യാഭ്യാസത്തിന് രാജ്യം വൻപ്രാധാന്യമാണ് നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

രുമ ഏറ്റവും മികച്ച ഇന്ത്യൻ ആപ്പ് കണ്ടെത്താൻ ആത്മനിർഭർ ഭാരത് ഇന്നൊവേഷൻ ചലഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു ഈ ചലഞ്ചിൽ പങ്കാളികളാകാൻ രാജ്യത്തെ ടെക് സമൂഹത്തോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു നിലവിലുള്ള ആപ്പുകളുടെ പ്രചാരണവും പുതിയ ആപ്പുകളുടെ വികസനവുമാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്ന് ലിങ്ക്ഡ് ഇൻ പോസ്റ്റിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി രാജ്യത്ത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പുകളിൽ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ ശേഷിയുള്ളവയെ തിരിച്ചറിയുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ ആപ്പ് ചലഞ്ച് രുമ രാജ്യത്ത് കോവിഡ് രോഗ മുക്തി നേടിയവരുടെ എണ്ണത്തിൽ വർദ്ധന തുടരുന്നു

വളയം സ്വദേശി അബ്ദുൽകരീമാണ് മരിച്ചത്

ദേദ മഞ്ചേരിയിൽ കോവിഡ് നിരീക്ഷണത്തിലുണ്ടായിരുന്ന വണ്ടൂർ സ്വദേശി മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചു

രുമ പകർച്ചവ്യാധി നിയമം ഭേദഗതി ചെയ്ത് സംസ്ഥാന ഗവൺമെന്റ് വിജ്ഞാപനമിറക്കി പൊതുസ്ഥലങ്ങളിലും ജോലിസ്ഥലങ്ങളിലും വാഹനയാത്രയിലും മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കിയത് ഉൾപ്പെടെ ഭേദഗതികളാണ് വിജ്ഞാപനത്തിലുള്ളത്

രോഗമുക്തരുടെ എണ്ണത്തിലും വർധനയുണ്ട്

രുര സംസ്ഥാനത്ത് കൊവിഡ് സമൂഹവ്യാപനത്തിന്റെ ഘട്ടത്തിലേക്ക് കടന്നതായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കി ഉറവിടമറിയാത്ത കൊവിഡ് ബാധിതരുടെ എണ്ണം ദിനംപ്രതി വർധിച്ചുവരുന്നത് ഇതിന്റെ സൂചനയാണെന്ന് ഐഎംഎ പ്രസിഡന്റ് ഡോ

രോഗികളുമായി സമ്പർക്കത്തിൽ ഏർപെടാത്ത ആരോഗ്യപ്രവർത്തകർക്ക് കൊവിഡ് സ്ഥിരീകരിക്കുന്നത് ആശങ്കജനകമാണ് ഈ സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ കൊവിഡ് ടെസ്റ്റുകൾ വർധിപ്പിക്കണമെന്ന് ഡോ

ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ഐഎംഎ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും അദ്ദേഹം അറിയിച്ചു രേര തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ സമ്പർക്കംമൂലം നാല് കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരത്തിലെ കണ്ടെയിൻമെന്റ് സോണുകളിലടക്കം നഗരസഭ വീണ്ടും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഓൺലൈൻ ഫുഡ് ഡെലിവറി ബോയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കണ്ടെയിൻമെന്റ് സോണുകളിൽ ഓൺലൈൻ ഭക്ഷ്യ വിതരണം നിർത്തി വെക്കുമെന്ന് മേയർ കെ

പൂന്തുറ മേഖലയിൽ സമ്പർക്കംമൂലം രണ്ട് കേസുകൾകൂടി റിപ്പോർട്ട് ചെയ്തതിനാൽ പ്രത്യേക കൺട്രോൾറൂം തുറക്കുമെന്ന് മേയർ പറഞ്ഞു രുര സമൂഹ വ്യാപനം കണ്ടെത്താൻ താനൂർ നഗരസഭയിൽ ആക്ടീവ് സർവൈലൻസ് പരിശോധന നടത്തും നാല് ദിവസംകൊണ്ട് നഗരസഭയിലെ മുഴുവൻ വീടുകളിലും സർവേ നടത്തി സമ്പർക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും രോഗലക്ഷണമുള്ളവരുടെയും സ്രവ സാമ്പിൾ ശേഖരിക്കും ദേദ സമൂഹ വ്യാപന സാധ്യത കണ്ടെത്താൻ ആന്റിജൻ പരിശോധന പൊന്നാനി താലൂക്കിൽ തുടങ്ങി

സിറ്റിയിലെ ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തിയും നാല് സെക്ടറുകളാക്കി തിരിച്ച് പട്രോളിംഗ് ശക്തിപ്പെടുത്തും

കണ്ണൂർ കോർപ്പറേഷനിലെ മൂന്ന് ഡിവിഷനുകളും കീഴല്ലൂർ ആലക്കോട് കുറ്റിയാട്ടൂർ മാട്ടൂൽ കൂന്നോത്തുപറമ്പ് പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളുമാണ് കണ്ടെയിൻമെന്റ് സോണുകളായത്

എസ് എഫ് ക്യാമ്പിലെ ജവാൻമാരാണ് മൂന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു മറ്റുള്ളവർ വിദേശത്ത് നിന്നും മറ്റു സംസ്ഥാന ങ്ങളിൽ നിന്നും എത്തിയവരാണ്

എസ്

രുഭ ഇറ്റാലിയൻ കപ്പലിലെ നാവികർ നിരപരാധികളായ രണ്ട് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന കേസിൽ സാധ്യമായ നീതി ലഭ്യമാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു കേസിൽ അർഹിക്കുന്ന ഗൌരവത്തോടെ ഇടപെടലുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രതികളെ ഇന്ത്യൻ കോടതിയിൽ വിചാരണ ചെയ്യാൻ പറ്റില്ലെന്ന അന്താരാഷ്ട്ര ട്രിബ്യൂണലിന്റെ വിധി ഞെട്ടിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രുമ വിമാനത്താവളങ്ങളിൽ ഡ്യൂട്ടിയിലുളള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പി

ഇ കിറ്റുകൾ ഉൾപ്പെടെ സുരക്ഷാ ഉപകരണവും ഭക്ഷണവും ലഭ്യമാക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകി

ഒരു പ്രത്യേക ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഡ്യൂട്ടി പോയിന്റുകളിൽ എത്തി ജോലി ചെയ്ത് മടങ്ങേണ്ടതാണെന്നും ഡി ജി പി പറഞ്ഞു

ജില്ലാ കോവിഡ് അവലോകന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രേര മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങൾ പ്രത്യേകിച്ച് വയറിളക്ക രോഗങ്ങൾ പടർന്നുപിടിക്കാൻ സാധ്യതയുള്ളതിനാൽ രോഗ നിയന്ത്രണത്തിനും ബോധവൽക്കരണത്തിനുമായി വയറിളക്ക രോഗ പക്ഷാചരണം തുടങ്ങിയ മന്ത്രി കെ

മത്സ്യബന്ധനഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും അധികൃതർ അറിയിച്ചു

ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഏകോപന സമിതി യോഗം ഡീൻകുര്യാക്കോസ് എം

കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനപങ്കാളിത്തതോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ ഗ്രാമീണ മേഖലയിലെ മുഴുവൻ വീടുകൾക്കും ഗുണനിലവാരമുള്ള കുടിവെള്ളം ലഭ്യമാക്കും